സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായങ്ങളെ വലിയതോതിൽ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നികുതി കൂടുതൽ ലളിതമാക്കാനും ജനസൌഹൃദമാക്കാനുമാണ് കേന്ദ്രഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ശ്രീ

ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റിലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പരിധി ഉയർത്താൻ തീരുമാനിച്ചത്

ടി കോമ്പോസിഷൻ പദ്ധതിയുടെ ഘടന പരിഷ്കരിക്കാനും തീരുമാനമായി ഒന്നരകോടി വരെ വിറ്റു വരവുള്ളവർ ഒരു ശതമാനം നികുതി നൽകണം നേരത്തെ ഇത് ഒരു കോടിയായിരുന്നു അടുത്ത ഏപ്രിൽ ഒന്നു മുതൽ ജി

ടി കൌൺസിൽ തീരുമാനം പ്രാബല്യത്തിൽ വരും

ഓർഡിനൻസ് അനുസരിച്ച് മുത്തലാഖ് നിയമവിരുദ്ധവും മൂന്നു വർഷം വരെ തടവുകളിക്കാവുന്ന കുറ്റമാണ് കേന്ദ്ര മന്ത്രിസഭയുടെ മറ്റ് തീരുമാനങ്ങൾ

ഇവയിൽ രണ്ടെണ്ണും ജമ്മു കശ്മീരിലെ സാംബ പുൽവാമ ജില്ലകളിലാണ്

ഇന്തൃയിൽ ബിസനസ്സ് സുഗമമായി നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാൻ വികസിത മാതൃകാ ഏകജാലക സംവിധാനത്തിന്റെ ശക്തിപ്പെടുത്തലിനായി ജപ്പാനുമായി ഉണ്ടാക്കിയ ധാരണാപത്രവും അംഗീകരിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പി ദേശീയ കൌൺസിൽ യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ കൌൺസിൽ ഉദ്ഘാടനം ചെയ്യും

ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എം പിമാർ തുടങ്ങിയരും യോഗത്തിൽ പങ്കെടുക്കും

നാളെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

ബിഐ ഡയറക്ടർ രാകേഷ് അസ്താന സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധിപറയും

തന്റെ മേൽ ചുമത്തിയ കേസുകൾ തെറ്റാണെന്നും ആസൂത്രിതമാണെന്നുമാണ് അസ്താനയുടെ വാദം ഖുറേഷി കേസിൽ രണ്ടു കോടി രൂപ ഒരു ബിസിനസ്സുകാരനിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നതാണ് അസ്താനയുടെ മേലുള്ള കുറ്റം

മേളയ്ക്കെത്തുന്ന തീർത്ഥാടകർക്കായി അക്ഷയ് വത് ദർശനത്തിന്റെ ഉദ്ഘാടനവും ദേവി സരസ്വതിയുടെ വിഗ്രഹത്തിന്റെ അനാഛാദനവും അദ്ദേഹം നിർവ്വഹിച്ചു

ചർച്ചയിൽ ഉസ്ബക്കിസ്ഥാൻ വിദേശ കാര്യമന്ത്രി അബ്ദുൽ അസീസ് കാമിലോവുമായി കേന്ദ്രമന്ത്രി അധ്യക്ഷ സ്ഥാനം പങ്കിടും

ന്യൂഡൽഹിയിൽ നടന്ന റെയ്സിന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപതൃത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ലെന്ന് ഇന്ത്യക്കാർക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും എല്ലാ അഞ്ചുവർഷംതോറും അവർ അത് കൃത്യമായി നിർവ്വഹിക്കുന്നുണ്ടെന്നും ശ്രീ ഗോഖലെ ചൂണ്ടിക്കാട്ടി

വിട്ടയച്ചവരുടെ വിവരങ്ങൾ ഗവർണ്ണർ പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദേശിച്ചു

ആറ് മാസത്തിനകം പരിശോധന പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു

ജമ്മുകശ്മീരിൽ കൂടിയ താപനില സാധാരണ നിലയെക്കാൾ വളരെ താഴെയാണ്

ഹരിയാനയിൽ അധംപൂരിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്

തെലങ്കാനയിലും ശക്തമായ തണുപ്പ് തുടരുന്നു

ഭാരദ്ധഹനത്തിൽ രണ്ട് സ്വർണ്ണത്തോടെ മിസോര്ട്ട് മികച്ച പ്രകടനം കാഴ്ച വെച്ചു

നോക്കൌട്ടിൽ ഇടംനേടാൻ ഈ മത്സരത്തിൽ ജയിക്കേണ്ടത് ഇന്ത്യയ്ക്ക് അനിവാര്യമാണ്

ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഏറ്റ്ട്രോ്ദ്ധഹന വിഭാഗത്തിന് ഇത്തരമൊരു ബഹുമതി ലഭിക്കുന്നതെന്ന് ഐ